പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ മഥുരയിൽ നിർവ്വഹിക്കും

ഓണം പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഏഷ്യൻ ചാമ്പൃന്മാരായ ഖത്തറിനെ ഇന്ത്യ സമനിലയിൽ തളച്ചു

ഉദ്ഘാടന ചടങ്ങിനിട്ടെ കന്നുകാലികളിൽ നടപ്പിലാക്കുന്ന ദേശീയ കൃത്രിമ ബീജസങ്കലന്റ പ്പിദ്ധതിക്കും പ്രധാനമന്ത്രി ആരംഭം കുറിക്കും മഥുരയിലെ പശു വിഗ്യാൻ ഏവം ആരോഗ്യമേള സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബീജദാന ക്യേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിർവ്വഹിക്കും

ഒരുമയുടെയും അതിജീവനത്തിന്റെയും സന്ദേശവുമായാണ് മലയാളി ഇത്തവണ മാവേലിയെ വരവേൽക്കുന്നത് സംസ്ഥാനത്തുടനീളം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണാഘോഷപരിപാടികൾക്ക് ഇന്നലെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു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

ചടങ്ങിനു മുന്നോടിയായി കലാമണ്ഡലം ശിവദാസും സംഘവും നേതൃത്വം നൽകിയ ഇലഞ്ഞിത്തറ പാണ്ടിമേളം അരങ്ങേറി

ദക്ഷിണേഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര വാതക പൈപ്പ്ലൈനാണ്ണിത് ബീഹാർ മോത്തിഹാരിയെയും നേപ്പാൾ അമലേഖ് ഗൃഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ പ്രകൃതീ സൌഹാർദ്ദ പെട്രോൾ വിതരണം ഉറപ്പുവരുത്തുന്നു

എട്ടാമത് ഏഷ്യൻ മിനിസ്റ്റീരിയൽ എനർജി റൌണ്ട് ടേബിളിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറഞ്ഞ വരുമാനവും കുറഞ്ഞ പ്രതിശീർഷ ഊർജ്ജ വരുമാനവുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലൂടെയും ദേശീയവും ബഹുമുഖവുമായ ഇടപെടലുകളിലൂടെയും ഊർജ്ജമേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു

ഇന്നലെ ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച ഭാവിയിലുള്ള സാധൃതകൾ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇന്ത്യ സിംഗപ്പൂർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച സഹായമെന്ന് വിദേശകാര്യ മന്ത്രി ട്വീറ്റ് ചെയ്തു

ജനീവയിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൌൺസിലിൽ വിദേശകാര്യ സെക്രട്ടറി വിജയ് താക്കൂർ സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമ്റ്ക്കിയത്

അടുത്തിടെയുണ്ടായ നിയമനിർമ്മാണ്ങ്ങൾ ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുക്കൊണ്ടുളളതാണെന്ന് ശ്രീമതി താ്ക്കൂർ പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനമാണ് ഇന്ത്യ ന്ദേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി

ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്ന രാജ്യങ്ങൾ മനുഷ്യാവകാശ വിരുദ്ധരാണ് ഇവർക്ക്എതിരെ കൈകോർത്ത് പോരാടണമെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നടപടിയുടെ പ്രധാന്യത്ത്രീക്കുറ്ച്ച് നന്നായി മനസ്റ്റിലാക്കാൻ കഴിയുന്നത് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്കുറങ്ങെന്നും അദ്ദേഹം ജമ്മുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

എസ് ട്രഷറി നിരോധനം പുറപ്പെടുവിച്ചു

അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ താവളമായ ക്യാമ്പ് ഡേവിഡിൽ താലിബാൻ നേതാക്കളുമായി അമേരിക്ക നടത്താനിരുന്ന കൂടിക്കാഴ്ചയെ ചൊല്ലി പ്രസിഡന്റ് ട്രംപും ഭരണകൂടവും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന്റെ അനന്തരഫലമാണ് നടപടിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു

ആളപായം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് മധ്യ ഇറാഖിലെ സലാഹെദ്ദീൻ പ്രവിശ്യയിൽ ടൈഗ്രിസ് നദിയുടെ കരകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം

അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് പിൻമാറൂന്നതായി അമേരിക്ക അറിയിച്ചതിനു പിന്നാലെയാണ് സ്ഫോടനീം ഉണ്ടായത്

പ്രേമചന്ദ്രൻ എം പി കൊല്ലത്ത് അറിയിച്ചു

പി മാരുടെ യോഗത്തിൽ എൻ

പ്രേമചന്ദ്രൻ എം പി വിഷയം ഉന്നയിക്കുകയും ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു

ഗോൾ കീപ്പർ ഗുർപ്രീത് സിങ് സന്ധുവിന്റെ ഉജ്വല സേവുകളാണ് ഇന്ത്യയ്ക്കു സമനില് നേടിക്കൊടുത്തത്